ഭൂമിയുടെ ഉൾവശം പരി ശോധിക്കാവുന്ന ജി പി ആർ ഉപയോഗിച്ചാണ് പരിശോധന നടത്തു ക ഹൈദരാബാദിൽ നിന്ന് ഉപകരണം വ്യോമമാർഗ്ഗമെത്തിക്കാൻ വ്യോമസേനയുമായി നടത്തിയ തായും മന്ത്രി പറഞ്ഞു ചർച്ച പ്രദേശത്ത് തെരച്ചിൽ നിർത്തിയെന്ന് വാർത്ത ശരിയല്ലെന്നും മന്ത്രി അറിയിച്ചു പലയിടത്തും ഭൂമി വിണ്ടുകീറുന്ന പ്രതി ഭാസം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ആവശ്യ മായ നടപടി സ്വീകരിക്കാൻ പ്രാദേശിക ഭരണസംവിധാന ങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു മലപ്പുറം കവളപ്പാറയിൽ ഉരുൾപ്പൊട്ടലിൽ കാണാതായ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി ഇതിൽ രണ്ട് മൃതദേഹങ്ങൾ കുട്ടികളുടേതാണ് ഒരാ മൃത ദേഹം തിരിച്ച റിഞ്ഞിട്ടില്ല

മലപ്പുറത്തെ കവളപ്പാറയിലും വയനാട്ടിലെ പുത്തുമല യിലും ഉരുൾപ്പൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്

വരുന്ന ഒരാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യ ത യി ല്ലെ ന്നാണ് കാലാ വസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം വൻമേഘാവരണം കേര ളതീരത്തു നിന്നും മാറിയതോടെ മാനം തെളിഞ്ഞു ഇതോടെ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച എല്ലാ കാലാവസ്ഥാ മുന്നറിയി പ്പുകളും പിൻവലിച്ചു

ഇന്ന് ഒരു ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് പടിഞ്ഞാ റൻ കാറ്റിന്റെ ശക്തിയും കുറഞ്ഞിട്ടുണ്ട്

ഇതേതുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയ എല്ലാ മുന്നറിയിപ്പുകളും പിൻവലിച്ചു കഴിഞ്ഞ ഏഴാം തീയതി തുടങ്ങിയ മഴ ഒരാഴ്ചയാണ് കേരളത്തെ പ്രള യജലത്തിൽ മുക്കിയത്

വീടുകളിലേക്ക് തിരിച്ചുപോയവരുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്നതിന് കോഴിക്കോട് ഗവ ഐ ടി ഐ യിൽ പ്രത്യേക ക്യാംപ് തുട ങ്ങി

ഉരുൾപൊട്ടലിൽ തകർന്ന വിലങ്ങാട് മേഖലയിലെ റോഡുകൾ താത്കാലികമായി ഗതാഗത യോഗ്യമാക്കി കാപ്പാട് തുഷാരഗിരി പൂക്കോട് റോഡ് ഇനിയും ഗതാഗത യോഗൃമായിട്ടില്ല

മലപ്പുറത്തു

സ്റ്റായുമെ ത്തിച്ച് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ദുരിതാശ്ചാസ പ്രവർത്തകരുടെ മിനിലോറി ടാങ്കറിലിടിച്ച് മൂന്ന് പേർക്ക് പരി ക്കേറ്റു ആലപ്പുഴ മണ്ണഞ്ചേരിയിലാണ് അപകടം തിരുവന ന്തപുരം സ്വദേശികളായ രാജീവ് അഖിൽ ശരത് എന്നി വർക്കാണ് പരിക്കേറ്റത്

രാവിലെ ആറോടെ ദേശീയപാതയിൽ വളവനാട് ഭാഗത്തായിരുന്നു അപകടം

ആവ ശ്യമായ ഘട്ടത്തിൽ വിഷയം ഗവൺമെന്റ് ചർച്ച ചെയ്യുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു

പ്രളയബാധിത ജില്ലകളിലെ ആശുപത്രികൾ റിലീഫ് ക്യാമ്പു കൾ തെരഞ്ഞെടുക്കപ്പെട്ട പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങ ളിൽ പ്രത്യേകം ഡോക്സി ബൂത്തുകൾ സ്ഥാപിച്ച് ഡോക്സി സൈക്ലിൻ ഗുളികകൾ സൌജന്യമായി വിതരണം ചെയ്യും

കശ്മീർ വിഷയത്തിൽ സമർപ്പിച്ച നാല് ഹർജി കളിൽ പിഴവുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പരിഗണിക്കുന്നത് കോടതി മാറ്റിയത് അഭിഭാഷകനായ എം എൽ ശർമ്മ സമർപ്പിച്ച ഹർജികളിലാണ് വ്യാപക പിഴവുകളുള്ളതായി ചീഫ് ജസ്റ്റിസ് രഞ്ജൻഗൊഗോയ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് കണ്ടെത്തിയത് രജിസ്ട്രി ചൂണ്ടിക്കാണിച്ചിട്ടും ഹർജികളിലെ പിഴവുകൾ തിരുത്തിയില്ലെന്നും ഇത് എന്ത്തരം ഹർജിയാണെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു അതേസമയം മാധ്യമങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയ നിയ ന്ത്രണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കശ്മീർ ടൈംസ് എക്സിക്യുട്ടീവ് എഡിറ്റർ അനുരാധ ബാസിൻ നൽകിയ ഹർജി വാദം കേൾക്കുന്നതിനായി മറ്റൊരു ദിവസത്തേക്കു മാറ്റി

വൈകീട്ട് അഞ്ചിന് കണ്ഠരർ മഹേഷ് മോഹനരരുടെ മുഖ്യ കാർമ്മികത്പത്തിൽ മേൽശാന്തി വി

വാസുദേവൻ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും ശബരിമല മാളി കപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പും നാളെ നടക്കും കനത്ത മഴയെത്തുടർന്ന് പമ്പയിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ തീർത്ഥാടകർക്ക് ജാഗ്രതാനിർദ്ദേശം നൽകിയിട്ടുണ്ട്

പരിശീ ലകനായി രവിശാസ്ത്രി തന്നെ തുടർന്നേക്കുമെന്നാണ് റിപ്പോർട്ട്

മേൽമുരുങ്ങോടി കല്ലേരിമല മുഴക്കുന്ന് എന്നിവിടങ്ങളിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത്

സി ജനറൽ സെക്രട്ടറിയും മുൻ കണ്ണൂർ ഡി സി സി പ്രസിഡന്റുമായ പി രാമകൃഷ്ണന്റെ അനുസ്മരണ സമ്മേളനം നാളെ കണ്ണൂരിൽ നടക്കും

സുധാകരൻ എം

ജോസഫ് എം എൽ എ ഉൾപ്പെടെ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി അറിയിച്ചു

ഇന്നലെ വൈകീട്ട് കാണാതായ പൊലീസ് ഹെഡ്കാർട്ടേഴ്സ് ജീവനക്കാരൻ രാധാകൃ ഷ്ണന്റെ മൃതദേഹമാണ് രാവിലെ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്

പാലക്കാട് ഈറോഡ് പാസഞ്ചർ ഈറോഡ് പാലക്കാട് പാസഞ്ചർ പാലക്കാട് തിരുച്ചിറപ്പള്ളി തിരുച്ചി റപ്പള്ളി പാലക്കാട് പാസഞ്ചർ ഹൈദരാബാദ് കൊച്ചു വേളി സ്പെഷ്യൽ ട്രെയിൻ കൊച്ചുവേളി ഹൈദരാബാദ് ട്രെയിൻ എന്നിവയാണ് ബുധനാഴ്ച്ച വരെ പൂർണമായും റദ്ദാ ക്കിയത് മംഗളൂരു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് അടക്കം ചില ട്രെയിനുകൾ പൊള്ളാച്ചി പഴനി ഡിണ്ടിഗൽ വഴി തിരിച്ചു വിടും

കോഴിക്കോട് മെഡിക്കൽ കോളജ് ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് രോഗി ചാടി മരിച്ചു

ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഏഴാം വാർഡിൽ ചികിത്സയിൽ ഇരിക്കെയാണ് ഇയാൾ കെട്ടി ടത്തിൽ നിന്ന് ചാടിയത്